പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വിലയിരുത്തി വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയിൽ മൂന്ന് വാക്സിൻ വികസന കേന്ദ്രങ്ങളെയും പ്രധാനമർത്തി അഭിനന്ദിച്ചു

എസ് എല്ലിൽ ഇന്ന് ബാംഗ്ളൂർ എഫ്

പോരാട്ടം

രാഷ്ട്രപതി ഭവനിൽ നടന്ന ആചാരപരമായ ചാർജ് കൈമാറ്റ ചടങ്ങ് രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് വീക്ഷിച്ചു

വിശിഷ്ട വൃക്തികൾക്കുള്ള ഗാർഡ് ഓഫ് ഓണർ സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ദിന പരേഡുകൾ തുടങ്ങിയ ആചാരപരമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് പ്രകടനം നടത്തുന്നത് ആർമി ഗാർഡ് ബെറ്റാലിയൻ ആണ്

ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന യോഗം വെർചലായാണ് നടക്കുന്നത്

റഷ്യ ചൈന ഖസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജികിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും

ഒ അംഗങ്ങളെ കൂടാതെ നാല് നിരീക്ഷണ രാജ്യങ്ങളിലെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും

അഹമ്മദാബാദിലെ സൈഡസ് കാഡില ഫാർമസ്യൂട്ടിക്കലിന്റെ വാക്സിൻ വികസന കേന്ദ്രം ഹൈദരാബാദിലെ ഭാരത് ബയോടെക് പുണെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തിയത്

അഹമ്മദാബാദിലെ സൈഡസ് ബയോടെക് പാർക്കിൽ പ്രവർത്തിക്കുന്ന സൈഡസ് കാഡില ഫാർമുസ്യൂട്ടിക്കലിലെ ശാസ്ത്രജ്ഞരുമായി കൂടിക്കാഴ്ച നടത്തിയു പ്രീപ്പാനമന്ത്രി കേന്ദ്രത്തിലെ വാക്സിൻ വികസന പ്രക്ട്രീയ് പരീക്ഷണങ്ങൾ അന്തിമഘട്ടം പൂർത്തിയാകാൻ എട്ടുക്കുന്ന് സമയം എന്നിവ അവലോകനം ചെയ്തു അടുത്ത് പൂർഷം മാർച്ചോടെ വാക്സിൻ പുറത്തിറക്കാനാണ് സൈഡസ് കായിലയുടെ ശ്രമമെന്ന് അധികൃതർ വ്യക്തമാക്കി അഹമ്മദാബാദ്ചിൽ ്നിന്നും ഹൈദരാബാദിൽ എത്തിയ പ്രധാനമന്ത്രി ഭാരത് ബയ്ട്ടെട്ടെക്കിലെ ശാസ്ത്രജ്ഞരുമായി ആശയവിനിമയം നടത്തി ഭാ്രത് ബയോടെക്ക് നിർമ്മിക്കുന്ന കോവിഡ് വാക്സിനായ കോവാക്സിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കൈവരിച്ച പുരോഗതി അദ്ദേഹം നിരീക്ഷിച്ചു

എത്രയും വേഗം കോവാക്സിന്റെ ഉത്പാദനം പൂർത്തിയാക്കുന്നതിനായി ഭാരത് ബയോടെക് സംഘം ഐ സി എം ആറുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് പിന്നീട് പുണെയിലെത്തിയ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സന്ദർശിച്ച് വാക്സിൻ നിർമാണ പുരോഗതി വിലയിരുത്തി ഇതുവരെയുള്ള കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയിൽ മൂന്ന് വാക്സിൻ വികസന കേന്ദ്രങ്ങളിലെയും ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ന് ആറ് പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ് പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തി

തിങ്കളാഴ്ച വാരണാസിയിൽ എത്തുന്ന പ്രധാനമന്ത്രി കാർത്തിക പൂർണിമയോടനുബന്ധിച്ചുള്ള ദേവ് ദീപാവലി ചടങ്ങിൽ പങ്കെടുക്കും നദി തീരങ്ങളിൽ വിളക്കുകൾ തെളിയിക്കുന്ന ദേവ് ദീപാവലി ചടങ്ങ് കാശി അയോധ്യ ചിത്രകൂട് എന്നിവിടങ്ങളിലും നടക്കും

ഇന്ത്യയെ ലോകത്തിന്റെ വൃദ്വസ്മായിക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ് ഈ ം നീങ്ങുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

കൊവിഡ് ബാധിതർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കും പ്രത്യേക തപാൽ വോട്ടിനുള്ള പട്ടിക നാളെ മുതൽ തയാറാക്കി തുടങ്ങും ഡിസംബർ ഏഴിന് വൈകിട്ട് മൂന്ന് മണി വരെ കോവിഡ് പോസിറ്റീവ് ആവുകയോ നിരീക്ഷണത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നവർക്കാകും പ്രത്യേക തപാൽ വോട്ട് സാധൃമാവുക

ജമ്മു കശ്മീർ പഞ്ചായത്തീരാജ് നിയമ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി

നിലവിലെ ശിവസേന കോൺഗ്ര്സ്ട് എൻ സി

ഉദ്ധവ് താക്കറെയുടെ ന്ദ്രൃത്തിലുള്ള മഹാരാഷ്ട്ര സർക്കാരിന്റെ ഒന്നാർ പ്പാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സർക്കാരിന് സ്ഥിരത ഉണ്ടെന്നും സഖൃകക്ഷികളുടെ ആശയങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താൽപ്പര്യത്തിനായി എല്ലാ പാർട്ടികളും ഒരുമിച്ചു പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

തുടർന്ന് പരിപാടിയുടെ മലയാളത്തിലുള്ള പരിഭാഷ കേൾക്കാം

എല്ലിൽ ഇന്ന് ബാംഗ്ളൂർ എഫ്

ഒഡീഷയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ആത്മവിശ്വാസവുമായാണ് ഹൈദരാബാദ്

ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ മിഡ്ഷിപ്പ്മെൻമാരുടെയും കേഡറ്റുകളുടെയും പാസിംഗ് ഔട്ട് പരേഡിനെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം പുതിയ സാങ്കേതിക വിദ്യകളെ കൂടുതൽ അറിയുന്നതിനും സ്വായത്തമാക്കുന്നതിനും സൈനിക വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

സർക്കാർ തലത്തിൽ പ്രഖ്യാപനമുണ്ടായ്ക്കിൽ തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറ്റൂയിപ്പു

ഇടിമിന്നലിന് സാധൃതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു